വിക്ഷേപണം അടുത്ത് മാസം മുതൽ പുനരാരംഭിക്കുമെന്ന് ഐഎസ്ആർഒ

നേതാക്കൾ കൊല്ലപ്പെട്ടു

റൈഡേഴ്സിനെതിരെ ചെന്നൈ സൂപ്പർകിംഗ്സിന് അവസാന പന്തിൽ ജയം

ഏകതാ പ്രതിമ സ്ഥിതി ചെയ്യുന്ന കെവാഡിയയിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും ഗുജറാത്ത് പൊലീസും വിവിധ കേന്ദ്രസേനകളും അണിനിരക്കുന്ന ഏകതാ പരേഡിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും മുസൂറിയിൽ പരിശീലനം നടത്തിവരുന്ന പുതിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥുമായി അദ്ദേഹം വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ സംവദിക്കും

ഇന്ത്യയെപ്പോലെ വിശ്വസ്തതയും കഴിവുകളും ഒത്തിണങ്ങിയ രാജ്യങ്ങളെയാണ് ലോകത്തിനാവശ്യം

വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും മെക്സിക്കൻ വിദേശകാര്യമന്ത്രി മാർസലോ എബ്രാർഡും അദ്ധ്യക്ഷത വഹിച്ചു

ജയശങ്കറും ഗ്രീസ് വിദേശകാര്യമന്ത്രി നിക്കോസ് ദന്തിയാസും ഓൺലൈൻ ചർച്ച നടത്തി ഇന്ത്യ ഗ്രീക്ക് ഉഭയകക്ഷി ബന്ധം ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സൌഹൃദപരവുമായ ബന്ധങ്ങളും ചർച്ചാവിഷയമായി

നേരത്തെ ഇവ നിയന്ത്രിതമായി കയറ്റുമതി ചെയ്യാവുന്നവയുടെ പട്ടികയിലായിരുന്നു രാജ്യത്ത് മിതമായ വിലക്ക് ഉള്ളി ലഭ്യമാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഉള്ളി വിത്തുകളുടെ കയറ്റുമതി നിരോധിച്ചതെന്ന് മന്ത്രി പിയൂഷ്ഗോയൽ പറഞ്ഞു

പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് തമിഴ്നാട് ഉത്തരാഖണ്ഡ് ചണ്ഡിഗഡ് ജമ്മുകശ്മീർ കേരളാ ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നെല്ല് സംഭരണം സുഗമമായി പുരോഗമിക്കുന്നു

വിദേശരാജ്യങ്ങളിലടക്കം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ്ധവാൻ സ്പേസ് സെന്റർ

വിക്രം സാരാഭായ് സ്പേസ് ക്സെന്ററിൽ നിർമ്മിച്ച വിക്ഷേപണ വാഹനം ശ്രീഹരിക്കോട്ടയിലെത്തിച്ചു

കോവിഡ് മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചാണ് നിക്ഷേപണത്തിനുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്

ന്യൂസ്ഡസ്ക് ആകാശവാണി

വീഡിയോ കോൺഫറൻസിംഗ് മുഖേന നടന്ന അവലോകനത്തിൽ ഉദ്യോഗസ്ഥർ സംസ്ഥാനങ്ങളിലെ സ്ഥിതി അവതരിപ്പിച്ചു

ജലവിതരണം സാർവത്ത്രിക്ക്മായി ലഭൃമാക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങളിൽ സംസ്ഥാന സർക്കാരിന് പൂർണ്ണ സഹായം നൽകാൻ ക്യേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് കേന്ദ്ര പ്രതിനിധികൾ പ്യക്തമാക്കി

ഉപഭോക്താക്കളുടെ ഡാറ്റ സ്വകാര്യത സംരക്ഷിക്കാനുള്ള നടപടികളെ കുറിച്ച് സമിതി ഇവരിൽ നിന്നും വിവരം ശേഖരിച്ചു ട്ടിറ്റർ ഫെയ്സ്ബുക്ക് ആമസോൺ പ്രതിനിധികൾ ഇതിനോടകം സമിതിക്ക് മുമ്പാകെ ഹാജരായി മൊഴിനല്കി

ശ്രീവാസ്തവ പറഞ്ഞു

യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഫിദാ ഹുസൈൻ യീത്തൂ ഉമർ ഹജാം ഉമർ റാഷിദ് ബെയ്ഗ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്

അക്രമികളെ കണ്ടെത്താനായി സുരക്ഷാസേന പ്രദേശം വളഞ്ഞിരിക്കുകയാണ്

കർശനമായി കൈകാരൃം ചെയ്യുമെന്നും

കോവിഡ് പശ്ചാത്തലത്തിലാണ് മേള മാറ്റി വയ്ക്കാനും അടുത്തവർഷം നടത്താനും തീരുമാനിച്ചത്

ഇന്ന് അബുദാബിയിൽ നടക്കുന്ന് മത്സരത്തിൽ കിങ്സ് ഇലവൺ പഞ്ചാബ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും

ശനിയാഴ്ച കൂടി അപേക്ഷ സമർപ്പിക്കാം